വെള്ളമിറങ്ങിത്തുടങ്ങി പ്രധാന പ്ലെല്ലുവിളിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ

നൽകുമെന്ന് കേന്ദ്രആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പ്രളയക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ന് വിലയിരുത്താനായി നാളെ സർവ്വകക്ഷിയോഗം

വിതരണ സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങി

വെള്ളി ടട കേരളം മഴ സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്നതോടെ പലയിടങ്ങളിൽ നിന്നും വെളളം ഇറങ്ങി തുടങ്ങി മഴ കുറഞ്ഞതോടെ രക്ഷാപ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് പലരും വീട്ടിലേയ്ക്ക് മടങ്ങിതുടങ്ങി എന്നാൽ പ്രളയത്തിൽ പല വീടുകളും മണ്ണിനിടയിലായി വീടിനുളളിൽ പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുഖ്യപ്രാധാനൃമാണ് ഇനി നൽകേണ്ടത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും മരുന്നുകളൂം എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ജില്ലകളിൽ പുരോഗമിക്കുന്നു

ടട സർവ്വക്ഷിയോഗം പ്രളയക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തുടർനടപടികളും ചർച്ചചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചു നാളെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം രക്ഷാപ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും ഇനി ദുരിതാശാസ പ്രവർത്തനത്തിനാണ് മുൻതൂക്കമെന്നും മുഖ്യമന്ത്രി നേരത്തെ വൃക്തമാക്കിയിരുന്നു

ജില്ലയിലെ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ മന്ത്രി ജി

വൈക്കം തലയോലപ്പറമ്പ് കടുത്തുരുത്തി കുമരകം ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു കോട്ടയത്തുനിന്നുള്ള കെ എസ് ആർ ടി

അടിമാലി പാല ഭാഗങ്ങളിലേയ്ക്കുള്ള ഗതാഗതവും പുനസ്ഥാപിച്ചു പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നതോടെ മൂവാറ്റുപുഴ മേഖലകളിലും ആശങ്ക ഒഴിഞ്ഞു ഇടമലയാറിലും ഭൂതത്താൻകെട്ടിലും ജലനിരപ്പ് താഴ്ന്നു

കൂടാതെ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടവർ പേര് വിവരങ്ങൾ സ്കൂളുകളിൽ രജിസ്റ്റർ ചെയ്യണം

ഇതിനായി റേഷൻകാർഡിൽ ചേർത്തിട്ടുളള കാർഡുടമകളുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ നൽകിയാൽ മതിയാകുമെന്ന് സപ്ലൈകോ സി

ഡി എം

ജയ കൊച്ചിയിൽ അറിയിച്ചു

ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കുറിച്ച് കൊല്ലം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാരൃം അറിയിച്ചത് ജനകീയ ശുചിത്വസേനയിലൂടെ ശുചീകരണ ദൌത്യം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനമൈത്രി പോലീസിനെയും സന്നദ്ധ്യസ്ർഘടനകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും യുവജനുങ്ങളുടെയും സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തും

രക്ഷാപ്രവർത്തനത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പങ്കും മന്ത്രി പ്രകീർത്തിച്ചു

ഇനിയും ബോട്ടുകൾ എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ മാർഗ്ഗം ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കുന്നു

സന്നദ്ധ സംഘടനകളും ക്സബുകളും ബസ്സുകളും ഓട്ടോറിക്ഷകളും സമൂഹത്തിന്റെ താഴേക്കിടയിൽ ഉളളവരും എല്ലാം സന്നദ്ധ സേവനത്തിൽ പങ്കാളികളാകുന്നുണ്ട്

പകലും രാത്രിയും ആവശ്യമായ പരിശോധനകൾ നടത്താൻ ലോക്കൽ പോലീസിന് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി

ടട എറണാകുളം എറണാകുളം ജില്ലയിൽ പല പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയെങ്കിലും പറവൂർ മേഖലയിൽ പല പ്രദേശങ്ങളും ഇപ്പോഴും വെളളത്തിനടിയിലാണ് കുത്തിയതോട് ആലങ്ങാട് കടുങ്ങല്ലൂർ വരാപ്പുഴ ചേന്നമംഗലം മൂത്തകുന്നം കോട്ടുവളളി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോഴും വെളളം കാര്യമായി ഇറങ്ങിയിട്ടില്ല ഈ മേഖലയിൽ ഇപ്പോഴും രൂക്ഷമായ ഗതാഗത തടസമാണ് അനുഭവപ്പെടുന്നത്

ക്കൊച്ചി ്നഗരത്തിലേയ്ക്കുളള കൂടിവെളളത്തിന്റെ പമ്പിങ്ങ് ആലുവയിൽ നിന്ന് പുനരാരംഭിച്ചു

എല്ലാ ജില്ലകളിലും നിലവിലുളള ജാഗ്രതാനിർദേശം പിൻവലിച്ചെന്നും കാലാവസ്ഥാകേന്ദ്രം അറിയിച്ചു

ആനത്തോട് കൊച്ചു പമ്പ ഡാമുകളുടെ ഷട്ടർ വീണ്ടും തുറക്കാനും തീരുമാനമുണ്ട് പമ്പയുടെയും കക്കാട്ടാറിന്റെയും തീരത്ത് താമസിക്കുന്നുവർ ജാഗ്രത പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ ഭൂർണ്കൂടം അറിയിച്ചു